സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടു ത്തി

രാത്രി വൈകിയും പല ബൂത്തുകളിലും വോട്ടിംഗ് തുടരുന്നതിനാൽ ഈ കണക്കുകളിൽ മാറ്റമുണ്ടാവും

മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്

പോളിംഗ് സമയം ആറു മണിക്ക് അവസാനിച്ചിട്ടും വോട്ടർമാരുടെ നീണ്ട നിരയാ യിരുന്നു പോളിംഗ് ബൂത്തുകളിൽ ജനാധിപത്യത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന തായിരുന്നു എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ സാന്നിധ്യം പോളിംഗ് ശത മാനം ഗണ്യമായി ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് മൂന്നു മുന്നണികളും ഒന്നര മാസത്തോളം നാടും നഗരവും ഇളക്കിമറിച്ചു പ്രചാ രണം പോളിംഗിലും പ്രതിഫലിച്ചെന്നാണ് വിലയിരുത്തൽ

് ് ് ് ് ് ് ് സംസ്ഥാനത്ത് ഏതാനും ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിലുണ്ടായ തകരാറ് വോട്ടെടുപ്പ് വൈകാൻ ഇടയാക്കി

നാലു പോളിംഗ് ഓഫീസർമാർ തളർന്നുവീണു വടകരയിലെയും കണ്ണൂരിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പോളിംഗ് ബൂത്തുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു കണ്ണൂർ എടക്കാടിൽ വോട്ടെടുപ്പ് അവസാനിക്കാ നിരിക്കെ വി വി പാറ്റ്മെഷീൻ തകർത്ത സംഭവമുണ്ടായി ജില്ലയിലെ മയ്യിലിന ടുത്ത ബൂത്തിൽ വി വി പാറ്റ് മെഷീനിൽ പാമ്പിനെ കണ്ടെത്തി ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടായി പടന്നക്കാട് ആറങ്ങാടി നീലേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സംഘർഷമുണ്ടായത് ബാവ നഗറിൽ പി പി ടി എ സ്കൂളിലു ണ്ടായ സംഘർഷത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവിയ്ക്ക് പരിക്കേറ്റു നീലേശ്വരത്ത് അക്രമത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മധു എന്നയാളെ മംഗലാപുരം ആശുപത്രിയിലും വിനോദ് എന്ന ആളെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാസർക്കോട് തെക്കിൽ പോളിംഗ്ബൂത്തിൽ കള്ള വോട്ടിനെചൊല്ലിയുണ്ടായ വാക്കേറ്റത്തിനിട യിൽ രണ്ട് യു ഡി എഫ് പ്രവർത്തകർക്ക് കുത്തേറ്റു ് ് ് ് ് ് ് ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മത്സരം കൊണ്ട് ശ്രദ്ധേ യമായ വയനാട് ലോസക്സഭാ മണ്ഡലത്തിൽ റെക്കോർഡ് പോളിംഗ്

കുറവ് വണ്ടൂരിൽ തോട്ടം ആദിവാസി മേഖ ലകളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് വനഗ്രാമമായ കുറിച്യാട് എല്ലാ വരും വോട്ട് ചെയ്തു

ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കനത്ത പോളിംങ്

വോട്ടർമാർ മികച്ച രീതിയിൽ വോട്ടവകാശം രേഖപ്പെടുത്തി

കടവത്തൂരിൽ പൊലീസിനുനേരെയുണ്ടായ ബോംബേറിൽ എസ് ഐയ്ക്കും ഒരു പൊലീസുകാരനും പരിക്കേറ്റു ഇന്നലെ സന്ധ്യയോടെ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നായി രുന്നു ബോംബേറ് പരിക്കേറ്റവരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പി ച്ചു മയ്യിൽ പൊലീസ് സ്റ്റേഷൻ പരിധിയിലെ അരിമ്പയിൽ ഇന്നലെ രാത്രി വീടി നുനേരെ ആക്രമണമുണ്ടായി നാലു സി പി ഐ എം പ്രവർത്തകർക്ക് പരിക്കേറ്റു

വടകര മണ്ഡലത്തിൽ പേരാമ്പ്രയിലാണ് കൂടുതൽ പോളിംഗ്

കഴിഞ്ഞും പുരോഗമിച്ച വോട്ടിങ് ചില ബൂത്തുകളിൽ രാത്രി പത്തുമണിയോടെ യാണ് പൂർത്തിയായത് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നെട്ടുങ്ങോട്ടൂർ പതിനാറാം ബൂത്തിൽ രണ്ടാമതെത്തിച്ച വി വിപാറ്റ് മെഷീനും തകരാറായതിനെ തുടർന്ന് പോളിംഗ് പൂർത്തിയാവാൻ പിന്നെയും സമയമെടുത്തു

വർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ പി

തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ പോലീസിന്റെ വയർലസ് സെറ്റ് സംഘത്തെ കാട്ടാന അക്രമിച്ചു വനത്തിൽ കുടുങ്ങിയ അഞ്ച് അംഗ സംഘത്തെ പോലീസും വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തി

കുറത്തിക്കുടിക്കും എളബ്ലാശേരിക്കും ഇടയിലാരുന്നു സംഭവം

മാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറി യിച്ചു

റോഡ്ഷോ നടത്തിയെന്ന കോൺഗ്രസ് ആരോപണത്തെകുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുജറാത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെ ട്ടു ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉമേഷ് സിൻഹ ന്യൂഡൽഹിയിലാണ് ഇക്കാര്യം അറിയിച്ചത്

ത്തെകുറിച്ച് അമ്പേഷിക്കാൻ മുതിർന്ന ജഡ്ജിമാരടങ്ങിയ മൂന്നംഗ സമിതിയെ നിയോഗിച്ചു ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ എൻ

രമണ ഇന്ദിരാബാ നർജി എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ ലൈംഗിക പീഡന പരാതി ഉന്ന യിച്ച് ജഡ്ജിമാർക്ക് കത്തെഴുതിയ സ്ത്രീയ്ക്ക് നോട്ടീസ് അയച്ചതായി ബോബ്ഡെ പറഞ്ഞു മറ്റന്നാൾ ആദ്യ വിചാരണ നടത്തുമെന്നും കോടതി സെക്രട്ടറി ജനറലി നോട് എല്ലാ രേഖകളും തയ്യാറാക്കി വയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇത് ഔപചാരിക ജുഡീഷ്യൽ നടപടി ക്രമമല്ലെന്നും കോടതിക്കകത്തെ നടപടിക്രമങ്ങളാണെന്നും ജസ്റ്റിസ് ബോബ്ഡെ വ്യക്തമാക്കി ് ് ് ് ് ് ് ചൈനയിലെ സിയാനിൽ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ യുടെ ലോക ഒന്നാം നമ്പർ താരം ബജ്റങ് പുനിയയ്ക്ക് സ്വർണ്ണം

മിക്സഡ് റിലേയിലും ഇന്ത്യക്ക് വെള്ളി മെഡൽ ലഭിച്ചു മുഹമ്മദ് അനസ് ആരോക്യ രാജീവ് വി

വിസ്മയ എം

പൂവമ്മ എന്നിവരാണ് റിലേയിൽ മത്സരിച്ചത് ചാമ്പ്യൻഷിപ്പ് മൂന്നു ദിവസം പിന്നിട്ടപ്പോൾ രണ്ട് സ്വർണ്ണവും അഞ്ചുവീതം വെള്ളിയും വെങ്കലവും ഇന്ത്യ നേടി ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിന് ജയം

യിൽ സൺ റൈസേഴ്സ് ഹൈദരബാദിനെ ആറു വിക്കറ്റിനാണ് അവർ തോല്പിച്ച ത് ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് ബാംഗ്ലൂർ റോയൽ ചല്ച്ചേഴ്സിനെ നേരിടും

എസ് ജിയോളജിക്കൽ സർപ്പെ അറിയിച്ചു നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല

വനത്തോട് ചേർന്ന് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കൂടുങ്ങിയത് ഇന്നലെയാണ് കുറിച്ചാട് റെയ്ഞ്ചിലെ വനം വാച്ചറായ കരുണാകരനെ കടുവ ആക്രമിച്ചത്

മുസ്തഫ നിര്യാതനായി

യില്ലാത്തവർക്ക് ബ്രെയിൽ ബാലറ്റു പേപ്പറും പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ടു ചെയ്യാൻ സഹായവും ചെയ്ത് ആത്മാഭിമാനം വർദ്ധിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീ ഷനെ കെ എഫ് ബി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അഭിനന്ദിച്ചു

കണ്ണൂരിൽ ഇന്നലെ രാത്രി ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും കൃഷി നാശം ഉണ്ടായി